ഒരു കോടിയോളം കർഷകർക്ക് ആദ്യ ഘഡുസ്ഹായം ഇന്ന് ലഭിക്കും

പുൽവാമയിൽ ജീവത്യാഗം ചെയ്ത ജവാന്മാരുടെ രക്തസാക്ഷിത്വം ഭീകരതയ്ക്കെതിരായ രാജ്യമനസാക്ഷിയെ ശക്തിമത്താക്കുമെന്ന് പ്രധാ നമന്ത്രി നരേന്ദ്രമോദി വർഗ്ഗീയ ജാതീയ വിഭാഗീയതയ്ക്കപ്പുറം ഭീക രവാദത്തെ വെല്ലുവിളിയായി ്ജനത ഏറ്റെടുക്കണമെന്ന് ആകാശവാണി യിലെ പ്രതിമാസ മൻകിബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി പറഞ്ഞു രാജ്യത്തെ സമാധാനം നിലനിർത്താനും നാടിനു നേരെയുണ്ടാകുന്ന ആക്ര മണങ്ങൾക്ക് തിരിച്ചടി നൽകാനും ഭീകരതയെ തകർക്കാനും സൈനൃം നൽകുന്ന സംഭാവനകൾ അദ്ദേഹം അനുസ്മരിച്ചു വീരമൃത്യുവരിച്ച ഒരു ജവാന്റെ കുടുംബം അവരുടെ രണ്ടാമത്തെ മകനെ സൈന്യത്തിൽ ചേർക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച നടപടി രാജൃസ്നേഹത്തിന്റെ അത്യു ദാരമായ തെളിവാണെന്ന് നരേന്ദ്രമോദി വിലയിരുത്തി നാളെ ഡൽഹി യിൽ ഉദ്ഘാടനം ചെയ്യുന്ന ദേശീയ യുദ്ധസ്മാരകം ധ്രീരജവാന്മാരുടെ സ്മൃതികൾക്കുമുന്നിൽ ആദരമർപ്പിക്കുന്നതിന്റെ ചെറിയൊരു തുടക്കമാ ണെന്ന് അദ്ദേഹം പറഞ്ഞു കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാൻമന്ത്രി കിസാൻസമ്മാൻ നിധി പദ്ധതിക്ക് തുടക്കമായി

പന്ത്രണ്ട് കോടിയോളം നാമമാത്ര ചെറുകിട കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ മൂന്ന് ഗഡുക്കളായി സഹായം നൽകുന്ന പദ്ധതിയാണ് പ്രധാൻമന്ത്രി കിസാൻ സമ്മാൻ നിധി രണ്ട് ഹെക്ടറിൽ താഴെ കൃഷിഭൂമിയുടെ ഉടമകൾക്കാണ് ആനുകൂലൃത്തിന് അർഹത

ഇത് തടയാൻ തെരഞ്ഞെടുപ്പു കമ്മീഷന് സാധിക്കാത്തത് ലജ്ജാ കരമാണ് ജനാധിപത്യത്തിൽ വോട്ടിന് കൈക്കൂലി നൽകുക എന്നതിനേ ക്കാൾ ലജ്ജാകരമായി മറ്റൊന്നില്ലെന്നും ചിദംബരം ഡൽഹിയിൽ പറ ഞ്ഞു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനത്തിന് സമാന രീതിയിൽ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നടത്തുന്നത് രാഷ്ട്രീയ അല്പത്തരമാണെന്ന് മന്ത്രി വി എസ് സുനിൽ കുമാർ അഭിപ്രായപ്പെട്ടു സംസ്ഥാനം അറിയാതെയാണ് കഴക്കൂട്ടത്ത് കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനം പദ്ധതിയുടെ ഉദ്ഘാടനം നടത്തിയതെന്ന് അദ്ദേഹം കോട്ടയത്ത് പറഞ്ഞു കേന്ദ്ര ഗവൺമെന്റിന്റെ ഇത്തരത്തിലെ നാടുവാഴിത്തം വിലപ്പോവില്ലെന്നും സുനിൽ കുമാർ അറിയിച്ചു ഡൽഹിയിലെ ഇന്ത്യാഗേറ്റിന് സമീപം ദേശീയ യുദ്ധസ്മാരകം നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാഷ്ട്രത്തിന് സമർപ്പിക്കും സ്വാതന്ത്ര്യാനന്തരം രാജ്യത്തിന്റെ സുരക്ഷയ്ക്കുവേണ്ടി ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്നതിനുവേണ്ടിയാണ് സ്മാരകം നിർമ്മിച്ചത് ജീവാർപ്പണം ചെയ്ത സൈനികരുടെ പേര് സ്മാരകത്തിന്റെ ഭിത്തിയിൽ രേഖപ്പെടു ത്തും

സംസ്ഥാന സംസ്ഥാനേതര ലോട്ടറി നിരക്ക് ഏകീകരണ ത്തിനായി ജി എസ് ടി കൌൺസിലിന്റെ നിർണായക് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും

പെരിയ ഇരട്ടക്കൊലപാതകത്തിന് ശുഹൈബ് ടി പി വധങ്ങളുമായി ബന്ധമുണ്ടെന്ന് കെ പി സി സി പ്രസിഡണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അഭിപ്രായപ്പെട്ടു

കേസന്വേഷണം സുതാര്യമല്ലെന്നും പൊലീസിന് ബാഹ്യസമ്മർദ്ദ മുണ്ടെന്നും മുല്ലപ്പള്ളി പത്തനംതിട്ടയിൽ കുറ്റപ്പെടുത്തി പാർട്ടിക്ക് ബന്ധമില്ലെന്ന് പറയുമ്പോഴാണ് സി പി ഐ എം നേതാക്കൾ പീതാംബരന്റെ വീട്ടിൽ എത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു പെരിയയിൽ കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിക്കാൻ മുഖ്യമന്ത്രി എത്തി യിരുന്നുവെങ്കിൽ കോൺഗ്രസ് പാർട്ടി സംരക്ഷണം നൽകുമായിരുന്നുവെന്ന് കോൺഗ്രസ് പ്രചാരണ സമിതി അധ്യക്ഷൻ കെ മുരളീധരൻ പറഞ്ഞു

എന്നാൽ ഒരിക്കലും തങ്ങളോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഡിസിസി നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് മുരളീധരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു മുഖ്യമന്ത്രി അവരുടെ വീടുകൾ സന്ദർശിച്ചിരുന്നുവെങ്കിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് പരാതി പറയാനെങ്കിലും അവസരം ലഭിക്കുമായിരുന്നു ഒരു മുഖ്യമന്ത്രിക്ക് മരണവീട്ടിൽ പോകാൻ ആരുടെയും അനുമതി ആവശ്യമില്ലെന്നും അദ്ദേഹം വൃക്തമാക്കി കൊല്ലപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ പ്രകോപന പരമായ പ്രസംഗം നടത്തിയ കാസർകോട് ജില്ലാ പഞ്ചായത്ത് അംഗം വിപിപി മുസ്തഫക്ക് എതിരെ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്നും മുരളീധരൻ ചോദിച്ചു ജാതിമത ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് പെരിയയിലെ മൃഗീയ കൊലപാതകത്തിനെതിരെ പ്രതികരിക്കണമെന്ന് സുരേഷ് ഗോപി എം

കാസർകോട് കൊല്ലപ്പെട്ട യൂത്ത് ക്രോൺഗ്രസ് പ്രവർത്തകരുടെ വീട് സന്ദർശിച്ചതിനുശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം കാസർകോട് ഹൈവേ മൂന്ന് ദിവസം ഉപരോധിച്ചാൽ മാത്രമേ യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ പൊലീസ് മേധാവികൾ തയ്യാ റാകൂ എന്നും അദ്ദേഹം പറഞ്ഞു കാസർകോട് പെരിയയിൽ കോൺഗ്രസ് നേതാവിന്റെ വീട് ഇന്ന് പുലർച്ചെ ഒരുസംഘം ആളുകൾ അടിച്ചു തകർത്തു കോൺഗ്രസ് പെരിയ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് സി രാജന്റെ വീടാണ് തകർത്തത് വീടിനുമു ന്നിൽ അക്രമിസംഘം തീയിടുകയും ചെയ്തു സംസ്ഥാനത്ത് തുടർച്ചയായുണ്ടാകുന്ന തീപിടുത്തങ്ങളിൽ വിശദമായ അന്വേഷണം വേണമെന്ന് അഗ്നിശമനസേനാ മേധാവി ഡി

തീപിടുത്തങ്ങളിലെ അട്ടിമറി സാധ്യതകൾ പരി ശോധിക്കണമെന്നും കാരണം കണ്ടെത്താൻ പൊലീസ് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും ഡിജിപി പറഞ്ഞു തീപിടുത്തങ്ങൾ നേരി ടാൻ സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തീപിടുത്തമു ണ്ടാക്കുന്ന നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ക്രിമിനൽ നടപടിവേ ണമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് സ്വകാരൃ ചാനലിനോട് പറഞ്ഞു

കർശന സുരക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്ന് സിഐഎസ്എഫിനും എയർപോർട്ട് സെക്യൂരിറ്റി യൂനിറ്റിനും എയർപോർട്ട് സെക്യൂരിറ്റി ഗ്രൂപ്പിനും ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ നിർദേശം നൽകി വാട്സ് ആപ്പിലൂടെ ലഭിക്കുന്ന കുറ്റകരമോ അശ്ലീലമോ ആയ സന്ദേശങ്ങൾക്കെതിരെ പരാതിപ്പെടാൻ ടെലികോം മന്ത്രാലയത്തിന്റെ സംവിധാനം

ഇതിന്റെ തുടർച്ചയായി അഞ്ച് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയും നടക്കും ചെന്നൈയിൽ ഐ

ഇന്നലെ ചെന്നൈയിൻ എഫ് സിയും ജംഷഡ്പൂർ എഫ് സിയും തമ്മിലെ മത്സരം ഗോൾ രഹിത സമനിലയിൽ പിരിഞ്ഞിരുന്നു വൃവസായ വാണിജൃ വകുപ്പ് സംഘടിപ്പിക്കുന്ന മലബാർ ക്രാഫ്റ്റ് സ് മേള ഇന്ന് കണ്ണൂർ പോലീസ് മൈതാനിയിൽ തുടങ്ങും വൈകീട്ട് നാലിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യും

പരമ്പരാഗത കലാകാരന്മാരെ മേളയിൽ പ്രോത്സാഹിപ്പിക്കുക തനത് ഉത്പന്നങ്ങൾക്ക് വിപണി ഒരുക്കുക എന്നിവ ലക്ഷ്യമിട്ടാണ് മേള

ചലച്ചിത്ര സംവിധായിക നയന സൂര്യനെ തിരുവനന്തപുരത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി

പക്ഷികളുടെ മണം എന്ന ചിത്രം തിരക്കഥയെഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട് നിരവധി പരസ്യ ചിത്രങ്ങളുടെയും സ്റ്റേജ് ഷോകളുടെയും സംവിധായികയാണ് സിനിമാ ഡോക്യുമെന്ററി സംവിധായകനും ജൂറിയുമായിരുന്ന കണ്ണൂർ പിലാത്തറ മണ്ടൂർ സ്വദേശി പി പി ഗോവിന്ദൻ നിര്യാതനായി

സരിത സീത സന്ധ്യാവന്ദനം ഹൃദയങ്ങളിൽ നീ മാത്രം എന്നീ മലയാള സിനിമകളും പാശക്കനൽ ഇപ്പടിക്ക് സ്തൃമൂർത്തി എന്നീ തമിഴ് സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട്

സാമൂഹിക വിമർശകനും നവോത്ഥാന നായകനുമായ വി

ഭട്ടതിരിപ്പാടിന്റെ ഓർമയ്ക്ക് പാലക്കാട് നിർമിക്കുന്ന സാംസ്ക്കാരിക സമുച്ചയത്തിന് മന്ത്രി എ കെ ബാലൻ വൈകീട്ട് തറക്കല്ലിടും

കവറത്തി കൽപേനി എന്നീ ദ്വീപുകളാണ് അദ്ദേഹം സന്ദർശി ച്ചത് ലക്ഷദ്വീപ് എം

യുടെ തദ്ദേശ വികസനഫണ്ടുപയോഗിച്ച് വാങ്ങിയ പോർട്ടബിൾ അൾട്രാസൌണ്ട് സ്കാനിംഗ് മെഷീൻ എം

കോഴിക്കോട് ആയഞ്ചേരിയിൽ കോൺഗ്രസ് മണ്ഡലം കമ്മറ്റി ഓഫീസിന് തീയിട്ടു

ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു മുവ്വാറ്റുപുഴ സ്വദേശികളായ ഷിബിൻ സമർ പി യൂസഫ് എന്നിവരാണ് മരിച്ചത് ഇടുക്കി അടിമാലിയിൽ ലൈഫ്മിഷൻ പദ്ധതിക്ക് കീഴിൽ ഭൂരഹിത ഭവനരഹിതർക്കായി നിർമിച്ച ഭവന സമുച്ചയം മന്ത്രി എ